മുഖ്യമന്ത്രി പിണറായി വിജീയൻ

മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്ര വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ

നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ലോകം ഇന്ന് നഴ്സസ് ദിനം ആചരിക്കുന്നു സംസ്ഥാനത്ത് മഴ തുടരും

തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്ക്

കോവിഡ് രണ്ടാം തരംഗം സമൂഹത്തിനുമേൽ ഏൽപ്പിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച പദ്ധതിയിൽ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം വളരെ പ്രധാനപ്പെട്ട സേവനമാണ് നൽകി വരുന്നത് ഓരോ ജില്ലയിലേയും മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ടീമിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മുഖൃമന്ത്രി പറഞ്ഞു

വരുന്ന ശനിയാഴ്ച ബാങ്കുകൾക്കും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവധി ദിവസമായിരിക്കും

അതത് ജീവ്യനിക്ക്ട്ട്ടരുടെ വകുപ്പുതലവന്മാരെ അറിയിച്ചശേഷം തദ്ദേശസ്ഥാപന് മേധാവികൾ ഇവർക്ക് കോവിഡ് ജോലി നൽകും

അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് തടസമില്ലാത്ത രീതിയിൽ ആശുപത്രി പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു

ജി എം ഒ

വിജയകൃഷ്ണൻ ആകാശവാണി വാർത്തകളോട്

ചികിത്സാകേന്ദ്രത്തിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്തുതുടങ്ങി

എസ് ആർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കേന്ദ്രത്തിന്റെ നടത്തിപ്പു ചുമതല ജില്ലാ പഞ്ചായത്തിനാണ്

കുടുംബ ശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്ക്ക് മുഴുവൻ സമയ കോവിഡ് ഹെൽപ് ഡെസ്ക്കായും പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുണ്ട്

സംഭവത്തിൽ ഇടപെട്ട കേന്ദ്ര സർക്കാർ ഇസ്രേയൽ സർക്കാറുമായി ബന്ധപ്പെട്ടു സൌമൃയുടെ മൃതദേഹം നാട്ടില്ലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു

കോവിഡ് വ്യാപനത്തിന്റെയും ലോക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ ഈദ് ഗാഹുകൾ ഒഴിവാക്കി പെരുന്നാൾ നമസ്ക്കാരം വീടുകളിലും ഒതുക്കും ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മാംസ വിഭവങ്ങൾ വീടുകളിൽ എത്തിച്ച് നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ പ്രത്യേക മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചു

നിപ്പ വൈറസിന്റെ കാലത്ത് ജീവൻ തൃജിച്ച സിസ്റ്റർ ലിനിയിലൂടെ നഴ്സുമാരുള്ട ത്യാഗം കേരളം കണ്ടതാണെന്ന് ആരോഗ്യമ്ത്രി കെ കെ ശൈലജ നഴ്സസ് ദിന സന്ദേശത്തിൽ പ്റഞ്ഞു

ബേഗൂർ റെയിഞ്ച് ഓഫിസർ കെ രാഗേഷിന് കിട്ടിയ രഹസൃവിവരത്തെ തുടർന്ന് തിരുനെല്ലി ഡെപ്യൂട്ടി റെയിഞ്ച് ഓഫിസർ എം വി ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്

തെക്കു കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപ്പപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതും നിരോധിച്ചിട്ടുണ്ട്